വിളിച്ച സർവ്വകക്ഷിയോഗം ഇന്ന് പൊതുബജറ്റ് നാളെ

തുള്ളിമരുന്ന് നൽകും

ജൂണിൽ പുറത്തിറക്കുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്

എ ഐ എ ഡി എം കെയുമായി സഖ്യം പ്രഖ്യാപിച്ച് ബി ജെ പി

വെങ്കയ്യ നായിഡു വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് രാജ്യസഭാ സമ്മേളനത്തിന്റെ സുഗമമായ്ട നടത്തിപ്പിന് രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം ആവശ്യ്ക്ക് ടുന്നതിനാണ് യോഗം വിളിച്ച്ത് ഇരുസഭകളുടെയും പ്രിസ്ംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി രാംനാഥ് ക്ടോവീന്ദിന്റെ നയപ്രഖ്യാപനത്തോടെ വെള്ളിയാഴ്ച ബജറ്റ് സമ്മേള്ളന്ത്തിന് തുടക്കമായി വെള്ളിയാഴ്ച ലോക്സഭാ സ്പീക്കർ ട്ടൂറ്റ് ബിർല കക്ഷിനേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു

നാല് ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകൾ ഇക്കുറി സഭ പരിഗണിക്കുമെന്ന് പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്ളാദ് ജോഷി അറിയിച്ചു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും മറ്റ് അടിയന്തര കാര്യങ്ങളും ഇക്കുറി സഭയുടെ പരിഗണനയിൽ വരും

രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി ദേശീയപോളിയോ പ്രതിരോധ യജ്ഞ്ച്ത്തീന് ഇന്നലെ രാഷ്ട്രപതി തുടക്കം കുറിച്ചു കൂടുതൽ വിവരങ്ങളുമായി അൾപ്പി അശോക്

കേരളത്തിൽ ഇരുപത്തിനാലര ലക്ഷത്തോളം കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും

പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ എട്ടിന് മന്ത്രി കെ കെ ശൈലജ നിർവ്വഹിക്കും കോവിഡ് പോസിറ്റീവായതോ ക്വാറന്റൈനിലോ ഉള്ള കുട്ടികൾക്ക് കാറന്റൈൻ കഴിയുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി തുള്ളിമരുന്ന് നൽകും വൈകിട്ട് അഞ്ചുവരെയാണ് വിതരണം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ തുള്ളിമരുന്ന് വിതരണത്തിന് മൊബൈൽ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി പോളിയോ വാക്സിൻ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് ലോകത്തെ പോളിയോ ബാധിതരിൽ അറുപതു ശതമാനവും ഇന്ത്യയിലായിരുന്നു എന്നാൽ ഒരു ദശകമായി രാജ്യം പോളിയോ മുക്തമാണ്

ആകാശവാണി

ആകാശവാണി വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാണ് ആകാശവാണി ദൂരദർശൻ യൂ ട്യൂബ് ചാനലുകളും പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യും

കോവോവാക്സ് എന്ന പുതിയ വാക്സിൻ ജൂണിൽ പുറത്തിറക്കാനായേക്കുമെന്ന് സിഇഒ അഡാർ പൂനവാല അറിയിച്ചു സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദേശസഹായത്തോടെ നിർമിക്കുന്ന കോവിഷീൾഡും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനുമാണ് നിലവിൽ ഇന്ത്യയിൽ കുത്തിവയ്ക്കുന്നത്

കേരളത്തിൽ കഴിഞ്ഞദിവസം ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്ക് റിപ്പോർട്ടുചെയ്തു

ഡി എം കെ യുമായി ചേർന്ന് മത്സരിക്കാൻ ബി ജെ

മധുരയിൽ ഇന്നലെ ചേർന്ന പൊതുയോഗത്തിൽ ബി ജെ

ദേശീയ അദ്ധ്യക്ഷൻ ജെ

ജെ

എൽ എ മാർ കൂടി ബി ജെ

ഇതിന് മുന്നോടിയായി ഇവർ ആഭ്യന്തരമിന്ന്തി അമിത് ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി

ക്ട്രേന്ദ്രമുന്തി അമിത് ഷാ ഓൺലൈനായി പങ്കെടുക്കും

കലാപക്കേസിൽ ഹിമാചൽ പ്രദേശിലെ നാലഹർ കോടതി ജയിൽ ശിക്ഷ വിധിച്ചിനെ തുടർന്നാണ് നടപടി

ഇതിനായി പൌരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തി

കോവിഡ് വാക്സിൻ ലഭിക്കുന്നതിലുള്ള കാലതാമസമാണ് നിയന്ത്രണം നീട്ടാൻ കാരണം

നിലവിൽ ഒരുലക്ഷം രൂപയ്ക്ക് മുകളിൽ മുദ്രവിലയുള്ള ഇടപാടുകൾക്ക് മാത്രമായിരുന്നു ഇ സ്റ്റാമ്പിംഗ് സംവിധാനം ഉപയോഗിച്ചിരുന്നത് നാളെ മുതൽ ഒരുലക്ഷം രൂപയിൽ താഴെയുള്ള ഇടപാടുകൾക്കും ഇ സ്റ്റാമ്പിംഗ് സംവിധാനമാകും ഉപയോഗിക്കുക

കൊല്ലം എസ്

രാജ്യത്തെ ഏറ്റവും വലിയ ആഭ്യന്തര ടൂർണമെന്റായ രഞ്ജി ട്രോഫി കോവിഡ് മാനദണ്ഡം പാലിച്ച് സംഘടിപ്പിക്കാൻ പ്രയാസമായതിനാലാണ് തീരുമാനം

കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല

ശർമ ഒലിയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്നു യോഗ്ത്തിലാണ് തീരുമാനം